ജെ പിയും പ്രതിഷേധ സമരത്തിലേക്ക്

ലോക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്ന കാര്യവും ചർച്ചാ വിഷയമാകും പ്രധാനമന്ത്രിക്ക് പുറമെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആരോഗ്യമന്ത്രി ഡോ ഹർഷവർദ്ധൻ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കും മാർച്ചിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ച ശേഷം മുഖ്യമന്ത്രിമാരുമായി നടത്തുന്ന അഞ്ചാമത്തെ വീഡിയോ കോൺഫറൻസ് ആണ് ഇന്നത്തേത് മൂന്നാംഘട്ട ലോക്ഡൌൺ അവസാന ആഴ്ച്ചയിലേക്ക് കടന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കുന്നതിൽ ഏറെ നിർണ്ണായകമായിരിക്കും ഇന്നത്തെ ചർച്ച നിയന്ത്രണങ്ങളെ തുടർന്ന് മാന്ദ്യത്തിലായ സമ്പദ് മേഖലയെ ഉത്തേജിപ്പിക്കാനാവശ്യമായ നിർദേശങ്ങൾ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞേക്കും ദരദ രാജ്യത്ത് യാത്രാ ട്രെയിൻ സർവ്വീസുകൾ നാളെ മുതൽ ഭാഗികമായി പുനരാരംഭിക്കും

ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം ഉൾപ്പെടെ സ്ഥലങ്ങളിലേക്കും തിരിച്ചുമായിരിക്കും സർവ്വീസുകൾ ഐആർസിടിസി വെബ്സൈറ്റിലൂടെ ഓൺലൈനായി മാത്രമായിരിക്കും ടിക്കറ്റ് വിതരണം ഇന്ന് വൈകീട്ട് നാലു മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം റെയിൽവെസ്റ്റേഷൻ കൌണ്ടറുകളിൽ ടിക്കറ്റ് വിതരണം ഉണ്ടാവില്ല ഉറപ്പായ ടിക്കറ്റ് ഹാജരാക്കുന്നവർക്ക് മാത്രമായിരിക്കും റെയിൽവെസ്റ്റേഷനുകളിൽ പ്രവേശനാനുമതി യാത്രക്കാർ നിർബന്ധമായും മുഖാവരണം ധരിച്ചിരിക്കണം

സ്റ്റേഷനുകളിൽ എല്ലാവരേയും സ്ക്രീനിങ്ങിന് വിധേയമാക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രത്യേക സർവ്വീസുകൾ ആരംഭിക്കുമെന്ന് റെയിൽവെ അറിയിച്ചു കുടിയേറ്റ തൊഴിലാളികൾക്കായി ശ്രമിക് സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കാനും റെയിൽവെ തീരുമാനിച്ചിട്ടുണ്ട്

രുമ പ്രവാസി മലയാളികളുമായി ഇന്ന് രണ്ട് വിമാനങ്ങൾ കേരളത്തിലെത്തും

ഇന്നലെ റദ്ദാക്കിയ ദോഹ തിരുവനന്തപുരം വിമാനം നാളെ സർവ്വീസ് നടത്തിയേക്കും ദേദ ഓപ്പറേഷൻ സമുദ്രസേതുവിന്റെ ഭാഗമായി പ്രവാസികളെ തിരികെ എത്തിക്കുന്നതിന് ഇന്ത്യൻ നാവിക സേനയുടെ രണ്ടാമത്തെ കപ്പൽ ഐ എൻ എസ് മഗർ മാലിയിൽ നിന്ന് മടക്കയാത്ര ആരംഭിച്ചു

എൻ എസ് ജലാശ്വ ഇന്നലെ കൊച്ചിയിൽ എത്തിയിരുന്നു ദേദ വന്ദേഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി മലേഷ്യയിൽനിന്നുള്ള ആദ്യവിമാനം ഇന്നലെ കൊച്ചിയിലെത്തി

ഇവരിൽ നാലു പേർ കുട്ടികളാണ്

വയനാട് ജില്ലയിൽ മൂന്ന് പേർക്കും തൃശൂരിൽ രണ്ട് പേർക്കും എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം ബാധിച്ചത് തൃശൂർ മലപ്പുറം ജില്ലകളിലെ രോഗ ബാധിതർ കഴിഞ്ഞ വ്യാഴാഴ്ച്ച അബുദാബിയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയവരാണ് വയനാട്ടിൽ സമ്പർക്കത്തിലൂടെയാണ് രണ്ട് പേർക്ക് രോഗം ബാധിച്ചത്

ഇന്നലെ പുതിയ ഹോട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടില്ല

രുദ വയനാട് ജില്ലയിൽ മൂന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം പത്തായി നേരത്തെ മൂന്ന് പേർക്ക് രോഗം ബേധമായിരുന്നു ചെന്നൈ കോയംപേട് മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച്ച എത്തിയ ഡ്രൈവറും ഇയാളുമായി സമ്പർക്കത്തിൽ വന്ന വ്യക്തിയുടെ ഭാര്യയും മറ്റൊരു യുവാവുമാണ് പുതുതായി രോഗം ബാധിച്ചവർ

കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയ മൂന്നുപേരെ നിരീക്ഷണത്തിലാക്കി

ഇവരെ ജില്ലയിലെ കോവിഡ് കെയർ സെന്ററുകളിലേക്ക് മാറ്റി

മൂന്ന് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്

രുര ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ മലയാളികൾക്ക് മടങ്ങിയെത്താൻ സൌകര്യം നിഷേധിക്കുന്നതിനെതിരെ വടക്കൻ ജില്ലകളിലെ കലക്ട്രേറ്റുകൾക്ക് മുന്നിൽ മുസ്ലീം ലീഗ് എംഎൽഎ മാരും ജനപ്രതിനിധികളും ഇന്ന് പ്രതിഷേധ സമരം നടത്തുമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

കോഴിക്കോട്ട് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും മലപ്പുറത്ത് ദേശീയ ജനറൽ സെക്രട്ടറി പി

കുഞ്ഞാലിക്കുട്ടിയും പാലക്കാട്ട് ദേശീയ ഓർഗനൈസിങ്ങ് സെക്രട്ടറി ഇ

മുഹമ്മദ് ബഷീറും വയനാട്ടിൽ പി

അബ്ദുൾ വഹാബും കാസർകോട്ട് രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യും രുദ സംസ്ഥാനങ്ങളിൽ അകപ്പെട്ട മലയാളികളെ മറ്റ് തിരിച്ചെത്തിക്കാൻ ഗവൺമെന്റ് മനുഷ്യത്വപരമായ അടിയന്തര നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി

സിവിൽ സ്റ്റേഷനു മുന്നിൽ രാവിലെ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

രമേശ് ഉപവാസം ഉദ്ഘാടനം ചെയ്യും രുദ വാളയാർ അതിർത്തിയിൽ ഇന്നുമുതൽ കൃത്യമായ തീയതിയും സമയവും രേഖപ്പെടുത്തിയ യാത്രാ പാസ് ഇല്ലാത്തവരെ കേരളത്തിലേക്ക് കടത്തിവിടില്ലെന്ന് പാലക്കാട് ജില്ലാ കലക്ടർ ഡി ബാലമുരളി അറിയിച്ചു അതിർത്തിയിൽ എത്തിയ ശേഷം പാസ് നൽകില്ല കഴിഞ്ഞ ദിവസം പാസില്ലാത്തതിനെ തുടർന്ന് കോയമ്പത്തൂരിലെ താൽക്കാലിയ വാസസ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചവർക്ക് ഹൈക്കോടതി നിർദേശ പ്രകാരം യാത്രാ പാസ് നൽകിയതായും കലക്ടർ പറഞ്ഞു

രുര കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ടൂറിസം വകുപ്പ് ഓൺലൈൻ സംവിധാനം തയാറാക്കി

രേര മലപ്പുറം ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ സംഘം ഇന്ന് ഉത്തർപ്രദേശിലേയ്ക്ക് മടങ്ങും

തിരൂരിൽനിന്ന് വൈകീട്ടോടെ പ്രത്യേക ട്രെയിൻ പുറപ്പെടും രേര ചരിത്രകാരനും കൊൽക്കത്ത സർവ്വകലാശാല എമിരറ്റസ് പ്രൊഫസറുമായിരുന്ന ഡോ ഹരിശങ്കർ വാസുദേവൻ കോവിഡ് ബാധിച്ച് മരിച്ചു